നിർദ്ദേശങ്ങൾ അതേപോലെ പ്രാവർത്തികമായാൽ വലിയ നഷ്ടം നേരിടേണ്ടിവരുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പതിനഞ്ചാം ധന കാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ സംസ്ഥാനത്തിന് ഗുണകരമാ കത്തക്കവിധം ഭേദഗതി ചെയ്യേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് തിരു വനന്തപുരത്ത് വിളിച്ചുചേർത്ത സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുക യായിരുന്നു മുഖ്യമന്ത്രി

ധനകമ്മി മൂന്ന് ശതമാന ത്തിൽ നിന്ന് കുറയ്ക്കുന്ന ഏതുനീക്കവും സംസ്ഥാനത്തിന്റെ കടമെടുപ്പി നെയും മൂലധന ചെലവിനെയും ദോഷകരമായി ബാധിക്കുമെന്നും മുഖ്യ മന്ത്രി പറഞ്ഞു

കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കരുതെന്നും കടമെടുപ്പ് പരിധി കുറയ്ക്കരു തെന്നുമുള്ള കേരളത്തിന്റെ പൊതു ആവശ്യത്തിൽ ഒരുമിച്ച് നീങ്ങാൻ ബി

പി ഉൾപ്പെടെ എല്ലാ പാർട്ടികളും സർവകക്ഷി യോഗത്തിൽ തീരുമാനി ച്ചതായി അദ്ദേഹം പിന്നീട് അറിയിച്ചു

കെ സിംഗിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടി കളുമായി ചർച്ചയ്ക്ക് സംസ്ഥാനത്ത് എത്തുന്നത്

ദർശ്ശേദ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ എം ജോസഫിനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിക്കാൻ വീണ്ടും ശുപാർശ ചെയ്യുന്ന തിന് കൊളീജിയം ത്ത്വത്തിൽ തീരുമാനിച്ചു ചീഫ്ജസ്റ്റിസ് ദീപക് മിശ്ര ഉൾപ്പെടെ കൊളീജിയത്തിലെ അഞ്ച് ജഡ്ജിമാർ ഒരു മണിക്കൂറോളം യോഗം ചേർന്ന ശേഷമാണ് ജസ്റ്റിസ് ജോസഫിനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിക്കണമെന്ന് ശുപാർശ വീണ്ടും കേന്ദ്ര ഗവൺമെന്റിന് അയയ്ക്കാൻ ഏകകണ്ഠമായി തീരുമാനിച്ചത് ജസ്റ്റിസ് കെ എം ജോസഫിനോടൊപ്പം മറ്റു ചില ഹൈക്കോടതി ചീഫ്ജസ്റ്റിസുമാരെക്കൂടി സുപ്രീംകോടതി ജഡ്ജിമാ രാക്കി ഉയർത്തുന്നകാര്യവും കൊളീജിയം ചർച്ച ചെയ്തു ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച ആവശ്യമായതിനാൽ ബുധനാഴ്ച വൈകീട്ട് വീണ്ടും യോഗം ചേരാനും കൊളീജിയം തീരുമാനിച്ചു ഈ യോഗത്തിന് ശേഷമാ യിരിക്കും ജസ്റ്റിസ് കെ

ജോസഫിനെ സുപ്രീംകോടതി ജഡ്ജിയാ ക്കണമെന്ന ശുപാർശ കേന്ദ്രഗവൺമെന്റിന് അയയ്ക്കുക രദേഷ്ടെടു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അല്പസമയത്തി നകം ആരംഭിക്കും

ജയ നഗർ മണ്ഡലത്തിൽ ബി

പി സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് നേരത്തെ വോട്ടെടുപ്പ് മാറ്റിവെച്ചിരുന്നു

രാജ്യം ഉറ്റുനോ ക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി

പിയും ജനതാദൾ എസും തമ്മിലാണ് പ്രധാന പോരാട്ടം

കനത്ത സുരക്ഷയാണ് വോട്ടെടുപ്പിന് ഒരുക്കിയിരിക്കുന്നത് ചൊവ്വാഴ്ച വോട്ടെണ്ണും

വി ജോർജ്ജിനെ സസ്പെന്റ് ചെയ്തു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ജോർജ്ജിനെതിരെ വകുപ്പുതല അന്വേഷണത്തിന് മുഖ്യമ ന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

വി ജോർജ്ജിന്റെ നിർദ്ദേ ശപ്രകാരം രൂപീകരിച്ച ആർ

എഫിന്റെ പ്രവർത്തനം ചട്ടവിരുദ്ധമാണെന്നും ക്രിമിനൽ കേസുകളിൽ ഇടപെട്ടത് ശരിയായ നടപടിയല്ലെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ ഒൻപത് പൊലീസുകാരാണ് പ്രതിപ്പട്ടികയിൽ ഉള്ളത് രുട്ട്ട്ട്ട്ട്ട്ട്ട ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് തീരുമാനി ക്കുന്നതിന് കേരള കോൺഗ്രസ് എം ഒൻപതംഗ ഉപസമിതിയെ നിയോഗി ച്ചു രണ്ടുദിവസത്തിനകം ഉപസമിതി തീരുമാനമെടുക്കുമെന്ന് കോട്ടയത്ത് നടന്ന ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം പാർട്ടി ചെയർമാൻ കെ

മാണി അറിയിച്ചു പാർട്ടിയുടെ ആറ് എം

എ മാരും രണ്ട് എം പിമാരും ട്രഷററും ഉൾപ്പെട്ടതാണ് ഉപസമിതി ദർവ്വട്ടെഴ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയപരിധി മറ്റന്നാൾ വൈകീട്ട് അവസാനിക്കുന്നതോടെ മത്സരചിത്രം വ്യക്തമാകും

രദ്ദേഷ്ടങ പൊതുജനത്തിന് സംരക്ഷണം നൽകേണ്ട പൊലീസ് ജനങ്ങളുടെ പേടി സ്വപ്നമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചെങ്ങന്നൂ രിൽ പറഞ്ഞു കൊലപാതക രാഷ്ട്രീയത്തിന് അന്ത്യം കൂറിക്കുന്ന ജനവിധി ചെങ്ങന്നൂരിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ദർവ്വെട്ടറ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് പെരുമണ്ണക്ലാരിയിൽ ഭൂമി പിളർന്നു മാറിയ സംഭവം സംബന്ധിച്ച് വിശദമായ പഠനം അനിവാര്യമാ ണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി ഇന്നലെ റവന്യൂ ഉദ്യോ ഗസ്ഥരും ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധികളും സ്ഥലത്തെത്തി പരി ശോധന നടത്തി

അബ്ദുൽ റഷീദ് പറഞ്ഞു ദർശ്ശേര റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവർക്കും പരിക്കേൽക്കുന്ന വർക്കും കൈത്താങ്ങാകാൻ പൊലീസുമായി സഹകരിച്ച് ഇന്ത്യൻ മെഡി ക്കൽ അസോസിയേഷൻ നടപ്പാക്കിയ അത്യാധുനിക ട്രോമ കെയർ സേവനം സംസ്ഥാനത്ത് നിലവിൽ വന്നു

പി ലോക്നാഥ് ബെഹ്റക്ക് നൽകിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്

സംസ്ഥാനത്തെ ആയിരത്തോളം ആംബുലൻസുക ളെയാണ് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയിരി ക്കുന്നത്

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർകിംഗ്സിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ച് രാജസ്ഥാൻ റോയൽസ് പ്ലേഓഫ് പ്രതീക്ഷ നിലനിർത്തി

എസ് അച്യു താനന്ദൻ ആവശ്യപ്പെട്ടു തമിഴ്നാടിനോട് ചേർന്ന ഭാഗത്തുനിന്നും ജലാശ യത്തിലേക്ക് അനധികൃത പ്രവേശനം തടയാൻ കോയമ്പത്തൂർ ജില്ലാ അധി കാരികളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടു രദ്ദേഷ്ടങ വിവിധ മാലിനൃങ്ങൾ പുനരുപയോഗൃമാക്കുന്ന വൃവസായങ്ങൾക്ക് ഗവൺമെന്റ് സഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി ഡോക്ടർ കെ

എറണാകുളം ജില്ലയിൽ തിരുമാറാടി പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതു സ്ഥകാര്യ പങ്കാളിത്തതോടെ സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണു വാനാണ് ശ്രമിക്കുന്നത് ഈ മേഖലയിൽ മുതൽ മുടക്കാൻ തയ്യാറുള്ളവർക്ക് ഗവൺമെന്റ് ഭൂമി ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ദർവ്വെടെ ഒര സംസ്ഥാനത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളും നവീകരിക്കുമെന്ന് മന്ത്രി ഇ

രുട്ടിട്ട്ട്ട്ട്ട്ട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ന ടത്തിയ കണ്ണൂർ ജില്ലയിലെ രണ്ട് സ്ഥാപനങ്ങളുടെ പ്രവൃത്തി തൊഴിൽ വ കുപ്പ് നിർത്തിവെപ്പിച്ചു കോഴിക്കോട് നിർമാണ സ്ഥലത്ത് മണ്ണിടിച്ചിലിൽ രണ്ട് തൊഴിലാളികൾക്ക് ജീവാപായമുണ്ടായ സാഹചരൃത്തിൽ സുരക്ഷാ മാനദണ്ഡ പാലനം കർക്കശമാക്കണമെന്ന മന്ത്രി ടി പി രാമകൃഷ്ണന്റെ നിർദ്ദേശാനുസരണമാണ് പരിശോധന നടത്തിയത്

അനർട്ടിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രുവ്പ്പെടു പാലക്കാട് നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനിയുടെ അടിവസ്ത്രം അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടുവെന്ന പരാതിയിൽ ഒരുമാസത്തിനകം അന്വേ ഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷ്യൻ നിർദ്ദേശിച്ചു

പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കണമെന്നും പരീക്ഷാ ഹാളിലുണ്ടായ മുഴുവൻ സൂപ്പർവൈസർമാ രെയും ചോദ്യം ചെയ്യണമെന്നും കമ്മീഷൻ ജില്ലാ പൊലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി

മേഴ് സിക്കുട്ടിയമ്മ ഉദ് ഘാടനം തീരദേശത്തു ള്ളവർ സാക്ഷരരാകുന്നതിനൊപ്പം അവരിൽ പരിസ്ഥിതിബോധം കൂടി സൃഷ്ടിക്കുകയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു രുവെട്ട്രെ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിനു വേണ്ടി വയനാട് ജില്ലാ പഞ്ചായത്ത് നടവയലിൽ പണികഴിപ്പിച്ച ഹോസ്റ്റൽ കെട്ടിടം ഇന്ന് രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്യും

പി ഇനിയും കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നാൽ ഗാന്ധി ജിയെ വില്ലനും ഗോഡ്സെയെ മാന്യനുമാക്കുമെന്ന് മുൻ കെ

സി പ്രസി ഡന്റ് കെ മുരളീധരൻ എം

രുട്ടിട്ടുള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാസർകോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ പത്തിന് ചെറുവത്തൂർ ഓരി എ